കോവിഡ് മഹാമാരിയെ ചെറുക്കാൻ മറ്റന്നാൾ മുതൽ നാല് ദിവസം ജനകീയ വാക്സിനേഷൻ മേള സംഘടിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കി കേരളം

ഇന്ന് തുടക്കം

കോവിഡ് സാഹചരൃം വിലയിരുത്താൻ രാജ്യത്തെ മുഖ്യമന്ത്രിമാരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിലാണ് പ്രധാനമന്ത്രി ഈ നിർദേശം മുന്നോട്ടു വച്ചത്

കോവിഡ് വാക്സിനേഷൻ യജ്ഞം വൻ വിജയമാക്കാൻ പ്രധാനമന്ത്രി യുവജനങ്ങളോട് അഭ്യർത്ഥിച്ചു കോവിഡിനെതിരെ യുദ്ധകാല അടിസ്ഥാനത്തിനുള്ള പ്രതിരോധമാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് പ്രധാമന്ത്രി മുഖ്യമന്ത്രിമാരോട് ആവശ്യപ്പെട്ടു

മഹാരാഷ്ട്ര ഛത്ത്രീസ്ഗ്ഢ് പഞ്ചാബ് മധ്യപ്രദേശ് ഗുജറാത്ത് തുടങ്ങിയ് ്സ്ട്രസ്ഥാനങ്ങൾ രോഗത്തിന്റെ ആദ്യഘട്ടത്തിലെ മൂർധന്യാവസ്ത്യും ഇപ്പോൾ പിന്നിട്ടു

രാജ്യത്ത് ആദ്യഘട്ടത്തേക്കാൾ വേഗത്തിലാണ് ഇപ്പോൾ രോഗവ്യാപനം ചില സ്്്ക്സ്ഫാനങ്ങളിൽ ജനങ്ങൾ രോഗത്തെ ഗൌരവത്തിലെടുക്കാതെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാത്തിൽ പ്രധാമന്ത്രി ദുഖം രേഖപ്പെടുത്തി വെല്ലുവിളി നിറഞ്ഞ ഘട്ടത്തെയാണ് രാജ്യം വീണ്ടും അഭിമുഖീകരിക്കുന്ന തെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കോവിഡ് പരിശോധന രോഗിയെ കണ്ടെത്തൽ ചികിത്സ കോവിഡിനെ ചെറുക്കാനുള്ള പെരുമാറ്റം ഉറപ്പുവരുത്തൽ എന്നിവയിൽ സംസ്ഥാനങ്ങൾ ശ്രദ്ധകേന്ദ്രീകരിക്കണം

സി

മാസ്ക് ധരിക്കൽ അടക്കമുള്ള കോവിഡ് മുൻകരുതൽ കർശനമായി പാലിക്കാൻ ബോധവത്കരണം തുടരണമെന്നും പ്രധാനമന്ത്രി നിർദേശിച്ചു

സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണപ്രദേശങ്ങൾക്കുള്ള വാക്സിൻ വിതരണം വർധിപ്പിക്കുന്നുണ്ട്

മഹാരാഷ്ട്രയ്ക്ക് ഇതുവരെ ഒരു കോടി ആറുലക്ഷം ഡോസ് വാക്സിനും രാജസ്ഥാന് ഒരു കോടി നാലൂലക്ഷം ഡോസ് വാക്സിനും നൽകിയെന്നും കേന്ദ്രമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു വാക്സിൻ വിതരണത്തിൽ പക്ഷപാതമില്ലെന്നും അദ്ദേഹം വൃക്തമാക്കി

ഓരോ ദിവസവും വിതരണം ചെയ്യുന്ന ഡോസുകളുടെ എണ്ണത്തിൽ ആഗോളതലത്തിൽ തന്നെ ഇന്ത്യയാണ് ഒന്നാമത്

മാസ്ക് കൃത്യമായി ധരിക്കുന്നുവെന്നും സാമൂഹിക അകലം പാലിക്കുന്നുവെന്നും ഉറപ്പാക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നിർദ്ദേശം നൽകി

കടകളിലും മറ്റും അകലം പാലിക്കുന്നില്ലെങ്കിൽ കർശന നടപടിയുണ്ടാകും

മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും ഇന്നലെ കോവിഡ് സ്ഥിര്യീകരിച്ചു

ഇരു രാജ്യങ്ങളിലെയും ക്സെനിക കമാൻഡർമാർ ഈ മേഖലയിലെ അവശേഷിക്കുന്ന പോയിന്റുകളിൽ സംഘർഷാവസ്ഥ ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യും ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ലഫ് ജനറൽ പി

ചൈനീസ് സൈനൃത്തിന്റെ പ്രതിനിധി സംഘത്തെ നയിക്കുക മേജർ ജനറൽ ലിയു ലിൻ ആണ് കഴിഞ്ഞ വർഷത്തെ രക്തരൂക്ഷിതമായ വേനൽക്കാലത്തിനുശേഷം മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ബഹുതല ഇടപെടൽ ഫലം നൽകുന്നുണ്ട്

കിഴക്കൻ ലഡാക്കിൽ നിന്ന് സൈന്യത്തെ പിന്മാറ്റുന്നത് സംബന്ധിച്ച് ഇന്ത്യയുമായി ചർച്ച വൈകില്ലെന്ന് ചൈന അറിയിച്ചിട്ടുണ്ട്

വിവിധയിടങ്ങളിൽ വോട്ടിങ് യന്ത്രങ്ങളുടെയും പോളിങ് സാമഗ്രികളുടെയും വിതരണം ആരംഭിച്ചു കഴിഞ്ഞു

ജെ പി നേതാവ് സുവേന്ദു അധികാരിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകി

എല്ലിന്റെ പരാതിയിലാണ് നടപടി

വെർച്ചൽ ഉച്ചകോടിയിൽ ഇരുനേതാക്കളും ഉഭയക്ക്ഷ് സഹകരണം സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്യുകയും ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ മാർഗ്ഗങ്ങൾ പരിശോധിക്കുകയും ചെയ്യും പരസ്പര താൽപ്പരൃമുള്ള പ്രാദേശിക ആഗോള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഇരുവരും പങ്കുവയ്ക്കും

ഛത്തീസ്ഗഡിലെ ബിജാപൂരിലാണ് ഈ മാസം മൂന്നിന് ജവാനെ നക്സലുകൾ തട്ടിക്കൊണ്ടുപോയത്

ഇന്ത്യ ബംഗ്ലാദേശ് ഭൂട്ടാൻ ശ്രീലങ്ക സേനകളുടെ സംയുക്ത അഭ്യാസ പ്രകടനം അദ്ദേഹം വീക്ഷിക്കും

ലക്ഷ്യം കൈവരിക്കുന്നതിന് ഇത്തരത്തിലുള്ള നിക്ഷേപം മൂന്ന് വർഷം തുടരുമെന്ന് കേന്ദ്ര ജൽശക്തി മന്ത്രാലയം അറിയിച്ചു

ഐ

എല്ലിന്റെ ഈ പതിപ്പിലെ മത്സരങ്ങൾ മുംബൈ ചെന്നൈ ബംഗളുരു അഹമ്മദാബാദ് ന്യൂഡൽഹി കൊൽക്കത്ത എന്നീ ആറ് വേദികളിലാണ് നടക്കുന്നത്

എല്ലാ സ്റ്റേഡിയങ്ങളിലും കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയാണ് ഈ വർഷം ഐ

എൽ ആഭ്യന്തര വേദികളിലേക്ക് തിരികെയെത്തിച്ചത് കഴിഞ്ഞ വർഷം കോവിഡ് സാഹചര്യത്തിൽ യു എ ഇയിൽ വച്ചായിരുന്നു ഐ

എൽ നടത്തിയത് ഒരു ഐപിഎൽ സീരീസ് മുൻ പതിപ്പിൽ നിന്ന് ആറുമാസത്തിനുള്ളിൽ ആരംഭിക്കുന്നത് ഇതാദ്യമാണ്

ഒമാനിൽ നടന്ന എഷ്യൻ യോഗ്യത മത്സരത്തിൽ വിഷ്ണു ശരവണൻ ഗണപതി ചെങ്കപ്പ വരുൺ താക്കൂർ എന്നിവർ ഒളിമ്പിക്സ് യോഗൃത നേടി കഴിഞ്ഞ ദിവസം ഒമാനിലെ മുസന്ന ഓപ്പൺ തുഴച്ചിൽ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ വനിതതാരം നേത്ര കുമാനനും ഒളിമ്പിക് യോഗൃത കരസ്ഥമാക്കി

ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സശാക്തീകരൻ പുരസ്ക്കൂ്ടരു് കൊല്ലം ജില്ലയിലെ ശൂരനാട് തെക്ക് ശാസ്താംകോട്ട പഞ്ചായത്തുകൾക്കും മലപ്പുറം ജില്ലയിലെ മാറഞ്ചേരി പഞ്ചായത്തിനും മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകളായി തിരുവനന്തപുരത്തെ നെടുമങ്ങാടും പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരവും തെരഞ്ഞെടുക്കപ്പെട്ടു തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനാണ് മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്ക്കാരം